വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമൃമില്ലാ കുറ്റമാക്കും ഓർഡിനൻസ് ഇന്ന് തന്നെ പുറത്തിറക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം

വിഷയത്തിൽ ഇന്ന് തന്നെ ഓർഡിനൻസ് ഇറക്കുമെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വൃക്തമാക്കി

ഇതിലൂടെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉറപ്പാക്കാനാകുമെന്ന് ശ്രീ

ഐ

എ പ്രതിനിധികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ യുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമരം പിൻവലിച്ചത് ഡോക്ടർമാരുടെ സുരക്ഷയും അന്തസ്സും സംരക്ഷിക്കപ്പെടുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകി നരേന്ദ്ര മോദി സർക്കാർ ആരോഗൃ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം വൃക്തമാക്കി

ഭാവിയിൽ അനിഷ്ട സംഭവങ്ങളൊഴിവാക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു തുടർന്നാണ് സമരം പിൻവലിക്കുന്നതായി ഐ

എ വ്യക്തമാക്കിയത്

എം

ഡോക്ടർമാരുടേയും ആരോഗ്യപ്രവർത്തകരുടെയും സമ്പൂർണ്ണ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു

രാജ്യത്ത് ദ്രുത പരിശോധനാ കിറ്റുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഐ സി എം ആർ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രോട്ടോക്കോൾ നൽകിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു

ജസ്റ്റിസുമാരായ സഞ്ജയ് കിഷൻ കൌൾ ബി

ഗവായ് എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്

കണ്ണൂരിൽ ഏഴുപേർക്കും കോഴിക്കോട് രണ്ടുപേർക്കും കോട്ടയം മലപ്പുറം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി ്പ്പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ആകെ ഒരു മാസത്തെ ശമ്പളമാണ് ഇത്തരത്തിൽ നീക്കിവയ്ക്കേണ്ടത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ സർക്കാർ ഗ്രാന്റ് കൈപ്പറ്റുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജീവനക്കാരാണ് ഒരു മാസത്തെ ശമ്പളം നീക്കിവയ്ക്കേണ്ടത്

മന്ത്രിമാർ എം

റെയിൽവേ അടുക്കളകളിൽ തയ്യാറാക്കുന്ന ഭക്ഷണം ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാൻ ജില്ലാ ഭരണകൂടങ്ങൾ നടപടി സ്വീകരിക്കണം

ആവശ്യമനുസരിച്ച് ഭക്ഷണ വിതരണം നടത്താൻ തയ്യാറാണെന്ന് ഐ

ടി

നിലവിൽ ഒരു ലക്ഷത്തോളം പേർക്ക് റെയിൽവേ സൌജന്യ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട് ലോക്ഡൌൺ കാലത്ത് മന്ത്രാലയം നടത്തുന്ന സൌജനൃ ഭക്ഷണ വിതരണം ഇന്നലെ ഇരുപത് ലക്ഷം പിന്നിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച അ്മേരിക്കയിൽ എട്ട് ലക്ഷത്തിലധികം പേർക്ക് രോഗം സ്ഥിരീക്ട്രിച്ചിട്ടുണ്ട്